നദ്ദ ഇന്നെത്തും

മറ്റ് ജില്ലകളിൽ രോഗബാധിതരുടെ എണ്ണ ഇതിൽ താഴെയാണ്

രംഭ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളജിൽ പ്രവർത്തിച്ചിരുന്ന കോവിഡ് ഒ പി കഞ്ചിക്കോട് കിൻഫ്രയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് മാറ്റിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കൊപ്പം നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പാലക്കാട് നഗരസഭാ പ്രദേശത്തെ കോവിഡ് രോഗികളുടെ തുടർ പരിശോധന നടത്താൻ സംവിധാനം ഏർപ്പെടുത്തിയതായും ഡിഎംഒ അറിയിച്ചു

രുര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവുകളിൽ ഒന്നായ ചൌരിചൌര സംഭവത്തിന്റെ ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ അനുസ്മരണാർത്ഥം പുറത്തിറക്കുന്ന തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും

തുടർന്ന് മഹാത്മാഗാന്ധി നിസഹകരണ സമരം നിർത്തിവെച്ചു രുമ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാൻ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദ ഇന്ന് തിരുവനന്തപുരത്തെത്തും രണ്ട് ദിവസം അദ്ദേഹം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കും പാർട്ടി കോർ കമ്മറ്റി യോഗത്തിലും തദ്ദേശ സ്ഥാപന അംഗങ്ങളുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും

വൈകീട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്ന നദ്ദ പിന്നീട് പ്രമുഖ വ്യക്തികളുമായും സമുദായ നേതാക്കളുമായും എൻഡിഎ നേതൃത്വവുമായും ചർച്ച നടത്തും നാളെ രാവിലെ നെടുമ്പാശേരിയിൽ എത്തുന്ന അദ്ദേഹം വൈകീട്ട് തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ബിജെപിയുടെ പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചു രുര രണ്ട് ദിവസത്തെ സിപിഐഎം സംസ്ഥാന കമ്മറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം മുസ്ലീം ലീഗിനെതിരെ മുന്നണി കൺവീനർ നടത്തിയ പരാമർശം തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും

സി പി ദേശീയാധ്യക്ഷൻ ശരത് പവാറുമായി കേരളത്തിലെ പാർട്ടി നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും എൽഡിഎഫിൽ തുടരുന്ന കാര്യം പാലാ സീറ്റിലെ തർക്കം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും

പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകൾ രണ്ട് ഷിഫ്റ്റായി പത്തര മുതൽ ഒന്നര വരെയും രണ്ടര മുതൽ അഞ്ചര വരെയും നടത്തും രംഭ പൊലീസിന് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് വഴി കേസ് അന്വേഷണങ്ങളിൽ മികവ് പുലർത്താനും പ്രത്യേക വൈദഗ്ധ്യം നേടാനും പൊലീസ് സേനക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പൊലീസ് സ്റ്റേഷനുകൾ ക്വാർട്ടേഴ്സുകൾ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു രുമ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സാന്ത്വന സ്പർശം അദാലത്തുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഇന്നലെ കണ്ണൂർ തൃശൂർ ആലപ്പുഴ കോഴിക്കോട് കൊല്ലം ജില്ലകളിലായിരുന്നു അദാലത്ത്

വർഷങ്ങളോളം പരിഹാരം കാണാൻ കഴിയാതിരുന്ന പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാക്കാൻ അദാലത്തിലൂടെ കഴിഞ്ഞെന്ന് മന്ത്രി കെ

ജനങ്ങളുടെ ജീവൽസ്പർശത്തിനൊപ്പമാണ് ഗവൺമെന്റ് നിലകൊള്ളുന്നതെന്ന് തൃശൂരിലെ അദാലത്തിൽ മന്ത്രി സി

രും കൊല്ലം ചാത്തന്നൂർ സ്പിന്നിങ്ങ് മിൽ നവീകരണത്തിന്റെ ആദ്യഘട്ടം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും

മന്ത്രി ഇ

ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും രും സപ്ലൈകോയുടെ നവീകരിച്ച ഏഴ് വിൽപ്പന ശാലകൾ മന്ത്രി പി

എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് മാറമ്പള്ളി ആലപ്പുഴ തൃക്കുന്നപ്പുഴ മലപ്പുറം കുളത്തൂർ കോഴിക്കോട് തുറയൂർ വയനാട് മേപ്പാടി എന്നിവിടങ്ങളിലാണ് പുതിയ സ്റ്റോറുകൾ തുറക്കുന്നത് രുഭ ഇടുക്കി കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഐടിഐ യുടെ ഒന്നാംഘട്ട കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി ടി

രാമകൃഷ്ണൻ ഓൺലൈനിൽ തറക്കല്ലിടും

മണി അധ്യക്ഷനായിരിക്കും രും കോഴിക്കോട് തിരുവമ്പാടി ഗവൺമെന്റ് ഐടിഐ കെട്ടിടത്തിന്റെ നിർമ്മാണം വൈകീട്ട് മന്ത്രി ടി

രുഭ കോവിഡ് മഹാമാരിക്ക് ശേഷം ക്ഷീരകർഷകർ തിരിച്ച് വരവിന്റെ പാതയിലാണെന്ന് മന്ത്രി കെ

അടിമാലിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൃഗാശുപത്രി കെട്ടിടം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

രംഭ ഗോവ ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് ബെങ്കളൂരു എഫ്സി തോൽപ്പിച്ചു ഇന്ന് വൈകീട്ട് ഏഴരക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും രുര പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്ന് വയനാട് ജില്ലയിൽ പര്യടനം നടത്തും കണ്ണൂർ ജില്ലയിലെ യോഗങ്ങൾ പൂർത്തിയാക്കിയെത്തുന്ന യാത്രാ സംഘത്തെ മാനന്തവാടി ബ്ലോക്ക് ഓഫീസ് റോഡ് പരിസരത്ത് സ്വീകരിക്കും കൽപ്പറ്റ ബത്തേരി എന്നിവിടങ്ങളിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്

ജില്ലാ അതിർത്തിയായ അടിവാരത്ത് യാത്രക്ക് സ്വീകരണം നൽകും പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ ഉയർത്തിയ എല്ലാ അഴിമതി ആരോപണങ്ങളും വസ്തുതകളാണെന്ന് തെളിഞ്ഞതായി കണ്ണൂർ ജില്ലയിലെ വിവിധ യോഗങ്ങളിൽ ചെന്നിത്തല പറഞ്ഞു

ആഴക്കടൽ മീൻപിടിത്ത ട്രോളറുകളുടെ നിർമ്മാണം തുറമുഖ വികസനം വിൽപ്പന ഔട്ലെറ്റുകൾ എന്നിവ പദ്ധതിയിൽ നിർമ്മിക്കും

രുര സംസ്ഥാനത്തെ മൂന്ന് മത്സ്യബന്ധന തുറമുഖങ്ങൾ ഈ മാസം തന്നെ കമ്മീഷൻ ചെയ്യുമെന്ന് ഔദ്യോഗിക വാർത്താ കുറിപ്പിൽ അറിയിച്ചു എറണാകുളം ജില്ലയിലെ ചെല്ലാനം മലപ്പുറം ജില്ലയിലെ താനൂർ കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ തുറമുഖങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് രുര കല്ലട ജലസേചന പദ്ധതിയുടെ വലതുകര കനാലിലൂടെ കാർഷിക ആവശ്യത്തിന് ജലവിതരണം ഇന്നാരംഭിക്കും തെൻമല ഒറ്റക്കൽ റിസർവോയറിൽ നിന്നാണ് വെള്ളം തുറന്നുവിടുന്നത്

രുമ നിയമ സംവിധാനത്തെ പ്രതിരോധത്തിലാക്കാനോ അതിനെ ദുരുപയോഗം ചെയ്യാനോ ആരെയും അനുവദിക്കില്ലെന്ന് വനിതാ കമ്മീഷൻ വ്യക്തമാക്കി ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ